ചേരിചേരാ പ്രസ്ഥാനം സൂപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

രണ്ടര ലക്ഷത്തിലധികം പേർക്ക് ജീവഹാനി

ചേരിചേരാ രാജ്യങ്ങളുടെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നടന്ന ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

മോദി അറിയിച്ചു

ഇന്ത്യൻ എംബസികളും ഹൈക്കമ്മീഷനുകളും വിദേശത്ത് ദുരിതം അനുഭവിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കിവരുന്നതായും മറ്റെന്നാൾ മുതൽ യാത്ര ആരംഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി നാവികസേന കപ്പലുകൾ വിമാനങ്ങൾ എന്നിവ വഴിയാകും ഇവരെ തിരികെ എത്തിക്കുക യാത്രക്കാരെ പരിശോധനയ്ക്കു വിധേയമാക്കിയ ശേഷമേ വിമാനങ്ങളിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നും രോഗലക്ഷണങ്ങളില്ലാത്തവരെ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കൂ എന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു

ലോകാരോഗൃ സംഘടനയും ലോകമെമ്പാടുമുള്ള ജനങ്ങളും എല്ലാ ഇന്ത്യാക്കാരും ഇത് അംഗീകരിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

സർക്കാർ എടുത്ത മുൻകരുതലുകൾ മൂന്നാംഘട്ട വൈറസ് വ്യാപനത്തിൽ നിന്നും രാജ്യത്തെ സംരക്ഷിച്ചു പത്ത് ലക്ഷത്തോളം പരിശോധനകൾ ഇതുവരെ നടത്തിയിട്ടുണ്ട്

സർക്കാർ ഇ വിപണിയിൽ ദി സാറാസ് കളക്ഷൻ എന്ന പേരിൽ ഉല്പ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഓൺലൈൻ സംരംഭത്തിന് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ തുടക്കം കുറിച്ചു ഗ്രാമീണ സ്വയം സഹായ സംഘങ്ങൾക്ക് തങ്ങളുടെ കരകൌശല കൈത്തറി തുടങ്ങിയ ദൈനംദിന ഉപയോഗ വസ്തുക്കൾ ഇതിലൂടെ വിറ്റഴിക്കാം

തുടർച്ചയായ രണ്ടാംദിവസമാണ് സംസ്ഥാനത്ത് പുതിയ കോവിഡ് കേസുകൾ ചെയ്യാതിരിക്കുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ പൊൽീസ്പും സുരക്ഷാ സേനയും ജോലി സമയത്ത് പാലിക്കേണ്ട സ്പൂര്ക്ഷാ് മുൻകരുതലുകൾ സംബന്ധിച്ച മാർഗ്ഗ നിർദ്ദേശങ്ങൾ പ്രത്യേക്കം ശ്രദ്ധിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കു്

എസ്

ഇതിനെ തുടർന്ന് സേനാ ആസ്ഥാനത്തിന്റെ രണ്ടു നിലകൾ അടച്ചു

ഇദ്ദേഹവുമായി അടുത്ത് ഇടപഴകിയ എല്ലാവരെയും നിരീക്ഷത്തിലാക്കിയിട്ടുണ്ട് ഇവരുടെ സാമ്പിളുകൾ പരിശോധിച്ചു വരുന്നു

ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാരും ഹാജരായിരുന്നില്ല